പി ബാലസുബ്രഹ്മണൃത്തിന് വിട രാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു

മരണനിരക്കിൽ കുറവ്

പി ബാലസുബ്രഹ്മണൃം അന്തരിച്ചു

കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചെന്നൈയിലെ എം

മൃതദേഹം നുങ്കംപാക്കത്തെ വസതിയിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് അഞ്ചിനാണ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിനും ഭാര്യ സാവിത്രിക്കും കോവിഡ് സ്ഥിരീകരിച്ചത്

ഇന്ത്യൻ സംഗീത ലോകത്തിന്റെ ഭാവാർദ്ര ശബ്ദത്തെയാണ് നഷ്ടമായതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിന്റെ സംഗീതം ഇനിയും നമ്മുടെ കാതുകളിലും ഹൃദയങ്ങളിലും അലയടിക്കുമെന്ന് ഉപരാഷ്ട്രപതി എം

ബിയുടെ നാദമാധുരൃം ദശാബ്ദങ്ങളോളം സ്വാധീനിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ ശ്രീ പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയവരും എസ്

തെന്നിന്തൃൻ ചലച്ചിത്രാസ്വാദകരെ സംഗീതാസ്വാദനത്തിന്റെ മായികതലത്തിലേയ്ക്കുയർത്തിയ ഗായകനാണ് എസ്

പ്രദേശത്തിന്റെയും അതിർവരമ്പുകളെ ഇല്ലാതാക്കിയ അതുല്യഗായകനായിരുന്നു എസ്

ബിയുടെ പ്രശസ്തി ഏഴ് തലമുറകൾക്കപ്പുറവും നിലനിൽക്കുമെന്ന് നടൻ കമൽഹാസൻ അഭിപ്രായപ്പെട്ടു

യുടെ ശബ്ദം ചിരകാലം ആരാധക ഹൃദയങ്ങളിൽ നിലനിൽക്കുമെന്ന് നടൻ രജനികാന്ത് അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു

ദക്ഷിണേന്ത്യൻ സംഗീത ലോകത്തിന് എസ്

ഇന്ത്യൻ സംഗീത ലോകത്തെ അതുല്യ പ്രി്ചിട്ടുയാണ് ഇന്ന് വിട വാങ്ങിയത്

ആദ്യ ഗുരു കൂടിയായ പിതാവ് എൻജിനീയർ ആക്കാൻ ആഗ്രഹിച്ച മകൻ പക്ഷെ സംഗീതം ഒരു കലയായി കൂടെ കൊണ്ടു നടക്കുകയും ഒടുവിൽ സംഗീതം തന്നെ ജീവിതമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു

മലയാളത്തിൽ ജി ദേവരാജൻ സംഗീതം നൽകിയ കടൽപ്പാലത്തിലെ മറുകടലും എന്ന ഗാനത്തിലൂടെ അദ്ദേഹം മലയാള സിനിമാ ലോകത്തേക്കും കടന്നു വന്നു

ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയ പിന്നണി ഗായകനെന്ന നിലയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോഡിലും എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന പേരെത്തി നടൻ സംഗീതസംവിധായകൻ ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിലും എസ്

എസ് പി ബി ഇളയനിലാ എന്ന് പാടുമ്പോൾ ന്മില്ലാവ് പൊഴിഞ്ഞിരുന്നത് കേൾക്കുന്നവരുടെ മനസ്സിലായിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശ്വാണി

നിലവിൽ ഒൻപത് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം പേർ രാജ്യത്ത് കോവിഡ് ചികിത്സയിലുണ്ട് രാജ്യത്ത് മരണനിരക്കിലും കുറവ് രേഖപ്പെടുത്തി

രണ്ട് ലക്ഷത്തിലധികം പേർ അമേരിക്കയിൽ ക്കോപിഡ് ബാധിച്ച് മരിച്ചു

പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായയുടെ ജന്മദിനത്തിൽ രാജ്യത്തെ ബി ജെ പി പ്രവർത്തകരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ കർഷകരെ ബാങ്കിംഗ് സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിരന്തര ശ്രമം വിജയം കണ്ടിരിക്കുകയാണ് പരമാവധി കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നതിനും കാർഷിക വായ്പകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനുമായി സർക്കാർ ശ്രമങ്ങൾ നടത്തുകയാണ് തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനം ഉറപ്പാക്കുക മാത്രമല്ല മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ കൊണ്ടുവരാൻ കൂടിയാണ് സർക്കാരിന്റെ തൊഴിൽ നയം ലക്ഷൃമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ജന്മവ്വാർഷികത്തോട് അനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോട്ടി ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യരക്ഷാ മന്ത്രി രാജ്ന്റ്റ്ഥ് സിംഗ് തുടങ്ങിയവർ ദീൻ ദയാൽ ഉപാധ്യയ്ക്ക് ആദ്യരാഞ്ജ്ലി അർപ്പിച്ചു

മൂലൃങ്ങളുടെയും പരസ്പര വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇന്തോ ജപ്പാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സുഗ യോഷിഹൈഡും സഹകരണം അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും ആഗോള പങ്കാളിത്തവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പുരോഗതിയിലാണെന്ന് ഇരു നേതാക്കളും വൃക്തമാക്കി

ടെലി മെഡിസിൻ ടെലി കൺസൾട്ടേഷനുകൾ എന്നിവയിലൂടെ ആരോഗ്യ സേവനങ്ങൾ സുഗമമായി എത്തിക്കുന്നതിൽ കോവിഡ് സമയത്ത് എയിംസിന്റെ സംഭാവന വളരെ പ്രധാനമാണെന്ന് ശ്രീ ഹർഷ് വർധൻ പറഞ്ഞു

മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് പകരമാണ് ദേശ്രീയ് മെഡിക്കൽ കമ്മീഷൻ നിലവിൽ വന്നത്

കോവിഡ് രോഗികൾക്ക് ഈ അവസാന മണിക്കൂറിൽ വോട്ടുചെയ്യാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുനിൽ അറോറ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

രാകുലിനു പുറമേ നടി ദീപിക പദുക്ക്ോണ്ണീഴ്ന്റ മാനേജർ കരിഷ്മ പ്രകാശ് ധർമ്മ പ്രൊഡക്ഷൻസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ക്ഷീതിജ് രവി എന്നിവരും എൻ സ്റ്റ്ഷിയുടെ മുന്നിൽ ഹാജരായി